ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗ്യൂസെപ്പെ കോണ്ടെയുമായി വെർച്വൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊറോണയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങളുമായി ലോകം പൊരുത്തപ്പെടണമെന്നും അതിൽ നിന്ന് ഉണ്ടാകുന്ന അവസരങ്ങൾക്കും വെല്ലുവിളികൾക്കും തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇറ്റലിയിൽ കോവിഡ് മൂലം മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോട് ഇന്ത്യൻ ജനതക്കുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു

ഉഭയകക്ഷി ബന്ധങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യാൻ ഇരു നേതാക്കൾക്കും ഉച്ചകോടി അവസരം നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ദ്ദേ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് തിയ്യതികൾ പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും പൂർത്തിയാക്കുന്ന തിരക്കിലാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് നേരത്തെതന്നെ പാർട്ടികൾ തുടക്കം കുറിച്ചിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലായി കണക്കാക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയം ഓരോ പാർട്ടിക്കും നിർണായകമാണ്

ആദ്യഘട്ടം തിരഞ്ഞെടുപ്പിന് ഒരുമാസം മാത്രം ബാക്കിനിൽക്കെ ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലാണ്

കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റീനിൽ ഉള്ളവർക്കും പോസ്റ്റൽ വോട്ടിന് സൌകര്യമേർപ്പെടുത്തിയിട്ടുണ്ട്

വിവിധ ജില്ലകളിലായി മൂന്നുലക്ഷത്തിലധികം ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്

ഐ

ഒയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ ഇ

കൃഷി വനസംരക്ഷണം ദുരന്തനിവാരണം എന്നീ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് പുതിയ ഉപഗ്രഹം ദേദ കള്ളപ്പണക്കാർക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുവരുന്ന ധീരമായ നടപടികളുടെ ഗുണം കേരള സമൂഹവും കണ്ടുതുടങ്ങിയെന്ന് കേന്ദ്ര സഹമന്ത്രി വി

ജെ പി ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ജോർജ്ജിയയിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് മുന്നേറ്റം

ജോർജ്ജിയയിലെ പതിനാറും പെൻസിൽവാനിയയിലെ ഇരുപതും ഇലക്ടറൽ വോട്ടുകൾ ജോ ബൈഡന് വൈറ്റ്ഹൌസിൽ എത്തുന്നതിന് വ്യക്തമായ ലീഡ് ഉറപ്പുവരുത്തും അതിനിടെ ജോർജ്ജിയയിൽ വീണ്ടും വോട്ടെണ്ണും ദേദ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് ഇന്ന്

വാത്മീകി നഗർ ലോക്സഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ

എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ആറുവിക്കറ്റിന് തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്വാളിഫയർ രണ്ടിൽ പ്രവേശിച്ചു അബുദാബിയിൽ നടന്ന കളിയിൽ പരാജയപ്പെട്ടതോടെ ബാംഗ്ലൂർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

നാളെ അബുദാബിയിൽ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും ദ്ദേ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ സജ്ജമാക്കിയ കാത്ത് ലാബ് വീഡിയോ കോൺഫറൻസ് വഴി മന്ത്രി കെ

മികച്ച ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രമായി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ഉയർത്തുന്നതിന് ഗവൺമെന്റ് തലത്തിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ദേദ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ടു തവണയായി ഒമ്പതു ദിവസമാണ് ബിനീഷിനെ എൻഫോഴ്സമെന്റ് കസ്റ്റഡിയിലെടുത്തത് വൈകുന്നേരം ബിനീഷിനെ ബാംഗ്ലൂരുവിലെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും ദേദ പെൻഷൻകാരുടെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൺ വർഷം മുഴുവൻ സമർപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്രഗവൺമെന്റ് അറിയിച്ചു

അപേക്ഷ സ്വീകരിക്കൽ മുതൽ ഹജ്ജ് കർമ്മം കഴിഞ്ഞു നാട്ടിൽ മടങ്ങിയെത്തുന്നത് വരെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആക്ഷൻ പ്ലാൻ പുറപ്പെടുവിച്ചു

പി ദേശീയ ഉപാധ്യക്ഷൻ എ

അബ്ദുള്ള കുട്ടിയെ കൈയ്യേറ്റം ചെയ്ത സംഭവത്തിലെ പ്രതിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു വെളിയംകോട് സ്വദേശി താറാമുട അഫ്സലിനെയാണ് അറസ്റ്റ് ചെയ്തത്

ദര നിരോധിത വല ഉപയോഗിച്ച് കടലിൽ മീൻ പിടിക്കുകയായിരുന്ന മൂന്ന് കർണാടക ബോട്ടുകൾ കാസർകോട് ചിത്താരി കടപ്പുറത്ത് പൊലീസ് പിടികൂടി ഏഴുലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കി

കുതിരാനിലെ ഒരു തുരങ്കം പുതിയ കരാർകമ്പനിയെ ഉപയോഗിച്ച് നാല് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനും നീക്കമുണ്ട്